അലോക് വർമ്മ തന്നെയാണ് ഇപ്പോഴും ഡയറക്ടറെന്ന് സി ബി ഐ ചുമതല

ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ നാളെ കേരളത്തിലെത്തും സംസ്ഥാന സ്കൂൾ കായികമേള തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിക്കും കുട്ടികളിൽ നിന്ന് ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി വിദഗ്ദ്ധ പരിശീലനം ലഭ്യമാക്കാൻ പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി ഇ

സംഘർഷത്തിൽ ഉൾപ്പെട്ടുവെന്ന് സംശ യിക്കുന്നവരുടെ ചിത്രങ്ങൾ പൊലീസ് പുറത്തുവിട്ടതിനു പിന്നാലെയാണ് അറസ്റ്റ് ഉണ്ടായത് സ്ത്രീകളെ അക്രമിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്ത കേസുകളിൽ പ്രതികളെ റിമാന്റ് ചെയ്തു

മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച തിനും വാഹനം ക്യാമറ എന്നിവ തകർത്തതിനും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ് ് ് ് ് ് ് ് ശബരിമലയിൽ അടിസ്ഥാന സൌകര്യമില്ലാതെ ഉടൻ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ബാധ്യതയു ണ്ടെന്നും ആവശ്യമെങ്കിൽ ഹരജിക്കാരന് സുപ്രീം കോടതിയെ സമീപിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബഞ്ച് വൃക്തമാക്കി ് ് ് ് ് ് ശബരിമല തീർത്ഥാടന കാലത്ത് ഉണ്ടാകാൻ സാധൃതയുള്ള അത്യാ ഹിതങ്ങൾ ഒഴിവാക്കുന്നതിന് സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും അടി യന്തരഘട്ട പ്രതികരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് പത്തനംതിട്ട് ജില്ലാകലക്ടർ പി

നൂഹ് പറഞ്ഞു ആധുനിക സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്തോടെ തീർത്ഥാടന തിരക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടങ്ങിയവ മനസ്റ്റിലാക്കുന്ന തിന് ഹോട്ട്ലൈൻ വയർലസ് തുടങ്ങിയ ആശയവിനിമയ സംവിധാനങ്ങൾ ഒരു ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തുലാമാസ പൂജക്കിടയിൽ ശബ്ബരിമലക്ഷേത്രം അടച്ചിടാൻ പന്തളം കൊട്ടാരം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ആചാരലംഘനം നടന്നാൽ ക്ഷേത്രനട അടച്ച് ശുദ്ധിക്രിയയ്ക്കു ശേഷം മാത്രമേ തുറക്കാവൂ എന്നാണ് പറഞ്ഞതെന്നും പന്തളം കൊട്ടാര നിർവ്വാഹക സംഘം പ്രസിഡന്റ് പി

ശശികുമാര വർമ്മ വ്യക്തമാക്കി ശബരിമലയുടെ സ്ഥത്തിൽ കണ്ണുള്ളവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ശബ രിമലയിലെ ഒരു പൈസ പോലും പന്തളം കൊട്ടാരത്തിന് ആവശ്യമില്ലെന്നും അദ്ദേഹം പന്തളത്ത് പറഞ്ഞു ് നവോത്ഥാന മുന്നേറ്റങ്ങളോട് മുൻകാലങ്ങളിലുണ്ടായ എതിർപ്പുകൾ കണ്ട് അന്നത്തെ നവോത്ഥാന നായകർ പിന്നോട്ടുപോയിരുന്നെങ്കിൽ ഇന്നത്തെ കേരളം ഉണ്ടാകുമായിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെ ട്ടു കോട്ടയത്ത് എൽ ഡി എഫ് വിശദീകരണയോഗം ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മുഖ്യമന്ത്രി ശബരിമല വിഷയത്തിൽ പ്രക്ഷോഭങ്ങൾ കണ്ട് ചൂളിപ്പോകുന്ന ഗവൺമെൻ്റല്ല കേരളത്തിലുള്ളതെന്നും കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിൽ ഗവൺമെന്റിന് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ് ് ് ് ് അലോക് വർമ്മ തന്നെയാണ് ഇപ്പോഴും സി ബി ഐ ഡയറക്ടറെന്ന് സി ബി ഐ വക്താവ് അഭിഷേക് ദയാൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു

ഇവർക്കെതിരായ കേസിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെയാണ് എം നാഗേ ശ്വരറാവുവിന് ചുമതല നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു റഫാൽ യുദ്ധവിമാന ഇടപാട് ഉൾപ്പെടെ സുപ്രധാന കേസുകളുമായി ബന്ധപ്പെട്ട ഫയലുകൾ അലോ ക്വർമ്മ പരിഗണിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്ഥാനത്തുനിന്ന് നീക്കിയ തെന്ന മാധ്യമറിപ്പോർട്ടുകൾ ശരിയല്ലെന്നും വക്താവ് വ്യക്തമാക്കി ് ് ് ് ് അതിനിടെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി നിർബന്ധിത അവധിയിൽ പോകാൻ കേന്ദ്രം ആവശ്യപ്പെട്ടതിനെ ചോദ്യം ചെയ്ത് അലോക്വർമ്മ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ എസ്

ജോസഫ് എന്നിവരടങ്ങിയ ബഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താന ഉൾപ്പെടെ സി ബി ഐ ഓഫീസർമാർക്കെതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കു ന്നതിന് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സന്നദ്ധ സംഘ ടനയായ കോമൺ കോസിനുവേണ്ടി പ്രശാന്ത് ഭൂഷൺ നൽകിയ ഹർജിയും ഇതേ ബഞ്ച് ഇന്ന് പരിഗണിക്കും ് ് ് ് ് ് ് അലോക് വർമ്മയെ സി ബി ഐ മേധാവിയായി പുനഃസ്ഥാപിക്കണ മെന്നാവശ്യപ്പെട്ട് രാജ്യത്തെ സി ബി ഐ ഓഫീസുകളിലേക്ക് കോൺഗ്രസ് ഇന്ന് മാർച്ച് നടത്തും ഡൽഹിയിലെ സി ബി ഐ ആസ്ഥാനത്തെ മാർച്ചിന് പാർട്ടി അധ്യക്ഷൻ രാഹുൽഗാന്ധി നേതൃത്വം നൽകും തിരുവനന്തപുരം മുട്ടത്തറ സി ബി ഐ ഓഫീസിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ച് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നി ത്തല ഉദ്ഘാടനം ചെയ്യും

തുടർന്ന് വർക്കല ശിവഗിരി മഠത്തിലെത്തുന്ന അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി നവതിയിൽ പങ്കെടുക്കും സംസ്ഥാനത്തെ രാഷ്ട്രീയ സ്ഥിതി ബി ജെ പി നേതാക്കളുമായി അദ്ദേഹം ചർച്ച ചെയ്യും മറ്റന്നാൾ രാവിലെ അമിത്ഷാ ഡൽഹിയിലേക്ക് പോകും

അംഗങ്ങളെ അയോഗ്യരാക്കണമെന്ന ആവശ്യം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തള്ളി എം എൽ എമാർ വഹിക്കുന്ന ഗവൺമെന്റ് ആശുപത്രി സമിതികളിലെ അധ്യക്ഷസ്ഥാനം ഇരട്ടപ്പദവിയുടെ പരിധിയിൽ വരില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീ ഷന്റെ ശുപാർശ അംഗീകരിച്ചാണ് നടപടി

ഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ഇന്ന് ആരംഭിക്കും

മീറ്റിൽ ഇത്തവണ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്

് കുട്ടികളിൽ നിന്ന് ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി വിദഗ്ദ്ധ പരി ശീലനം ലഭ്യമാക്കാൻ കിക്ക് ഓഫ് ഗ്രാസ് റൂട്ട് ഫുട്ബോൾ പരിശീലന പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി ഇ

എച്ച്

എസിൽ നടക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ഓരോ ജില്ലയിലും ഒരു പരിശീലനകേന്ദ്രമെങ്കിലും സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

ഗോഹട്ടിയിൽ നടന്ന കളി യിൽ ഇരുടീമുകളും ഓരോ ഗോൾ നേടി ആകാശവാണി ഈ വർഷം ദേശീയതലത്തിൽ നടത്തിയ സംഗീതമ ത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് മത്സ രത്തിൽ പങ്കെടുത്ത അഞ്ചുപേരും തൃശൂർ നിലയിൽ നിന്ന് പങ്കെടുത്ത ഒരാളും വിജയിച്ചു പെൺകുട്ടികളുടെ ഭക്തിഗാന വിഭാഗത്തിൽ എം രേഷ്മയും ലളിത ഗാന വിഭാഗത്തിൽ എം

നാടോടി ഗാന ത്തിൽ എസ്

പാശ്ചാത്യസംഗീതം വായ്പാട്ടിൽ എസ്

ദേവാനന്ദും ഉപകരണസംഗീതം വയലിനിൽ എച്ച് അരവിന്ദും തൃശൂർ നിലയത്തിൽ നിന്ന് ഘടത്തിൽ ബിജായ് ശങ്കറും രണ്ടാം സ്ഥാനക്കാരായി

ഉച്ചയ്ക്ക് രണ്ടിന് ബസേലിയോസ് മാർത്തോമാ പൌലോസ് ദ്വിതീയൻ കതോലിക്കാ ബാവ കൊടിയേറ്റ് നിർവ്വഹിക്കും

് ് ് ് ് ് ് കൊളംബോയിൽ നിന്ന് കൊല്ലത്തേക്ക് കപ്പൽ സർവീസ് ആരംഭിക്കുന്നതിന് സാധ്യത ആരായുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കൊളംബോയിൽനിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് ഇരുന്നൂറോളം കപ്പൽ സർവീസുകൾ നടത്തുന്ന എക്സ്പ്രസ് സീഡേഴ്സ് സീനിയർ ഡയറക്ടർ നെൽസൻ സെക്കേറയുമായി കൊല്ലത്ത് നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് എമിഗ്രേഷൻ ക്ലിയറൻസിന് കാലതാമസം ഒഴിവാക്കിയാൽ സർവീസ് തുടങ്ങാനാകുമെന്ന് സെക്കേറ വൃക്തമാക്കി ് ് ് ് ് ് ് കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ജീവനക്കാർക്ക് ഇരിപ്പിടം നൽകുന്നില്ലെങ്കിൽ ഗവൺമെന്റ് കടുത്ത ശിക്ഷാനടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ടി

രാമകൃഷ്ണൻ പറഞ്ഞു കോഴിക്കോട്ട് കേരള ഷോപ്സ് ആന്റ് എസ്റ്റാബ്ലി ഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യുന്ന യോഗം ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി ് ് ് ് ് ് ് സംസ്ഥാനത്തെ പ്രളയ പശ്ചാത്തലത്തിൽ ജലസുരക്ഷ ഉറപ്പാക്കുന്ന തിൽ നിന്ന് കേരളം വ്യതിചലിക്കരുതെന്ന് മന്ത്രി മാത്യു ടി

് ് ് ് ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ മൂന്നു ലക്ഷം രൂപ വരെ കട ബാധൃതകൾ എഴുതിത്തള്ളും

എൻഡോസൾഫാൻ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗമാണ് തുക അനുവദിച്ചത് ് ് ് ് ് കാസർകോട് ജില്ലയിൽ പാതയോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും അനധികൃതമായി സ്ഥാപിച്ച പരസ്യബോർഡുകളും ഫ്ളക്സുകളും കലക്ടറുടെയും ജില്ലാ പൊലീസ് മേധാവിയുടെയും നേതൃത്തിൽ നീക്കി തുടങ്ങി അഞ്ചു ദിവ സത്തിനകം ജില്ലയിൽ അനധികൃതമായി സ്ഥാപിച്ച എല്ലാ ബോർഡുകളും നീക്കാ നാണ് തീരുമാനം ് ് ് ് ് പുന്നപ്ര വയലാർ സമര വാർഷിക വാരാചരണത്തിന്റെ ഭാഗമായി ഇന്ന് മാരാരിക്കുളത്ത് അനുസ്മരണ സമ്മേളനവും റാലിയും നടക്കും വൈകിട്ട് ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി

അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും

റെയിൽവെ അറിയിച്ചു ഈ ട്രെയിൻ ഇന്നലെ കളമശ്ശേരിയിൽ പാളം തെറ്റിയിരുന്നു തിരൂർ നഗരത്തിലെയും പരിസരപ്രദേശങ്ങളിലെയും മാലിന്യം ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കാൻ നഗരസഭ സമഗ്ര മാലിന്യസംസ്കരണ പദ്ധതി നടപ്പാക്കും

ഇരുസംവിധാനങ്ങളുടെയും ശിലാസ്ഥാപനം ഇന്ന് മന്ത്രി എ സി മൊയ്തീൻ നിർവ്വഹിക്കും